അക്രമങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറി

ടി കൌൺസിലിന്റെ തീരുമാനം ചെറുകിട ഇടത്തരം വൃവസായങ്ങളെ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നികുതി കൂടുതൽ ലളിതമാക്കാനും ജനസൌഹൃദമാക്കാനുമാണ് കേന്ദ്രഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ശ്രീ നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു

ടി കൌൺസിലിൽ തീരുമാനിച്ചത്

ഇന്നലെ ന്യൂഡൽഹിയിൽ മന്ത്രി അരുൺ ജെയ്റ്റിലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലൂാണ് പരിധി ഉയർത്താൻ തീരുമാനിച്ചത്

ഒന്നരകോടി വരെ വിറ്റു വരവുള്ളവർ ഒരു ശത്യമാന്റ് നികുതി നൽകണം നേരത്തെ ഇത് ഒരു കോടിയായിരുന്നു അട്ടുത്തു ഏപ്രിൽ ഒന്നു മുതൽ ജി

ടി കൌൺസിൽ തീരുമാനം പ്രാബല്യത്തിൽ വരും

ഉസ്ബക്കിസ്ഥാൻ വിദേശ കാര്യമന്ത്രി അബ്ദുൽ അസീസ് കാമിലോവുമായി കേന്ദ്രമന്ത്രി അധ്യക്ഷ സ്ഥാനം പങ്കിടും

കിർക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ തുർക്ക്മെ നിസ്ഥാൻ കസാഖ്സ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കും

ഓർഡിനൻസ് അനുസരിച്ച് മുത്തലാഖ് നിയമവിരുദ്ധവും മൂന്നു വർഷം വരെ തടവു ലഭിക്കാവുന്ന കുറ്റവുമാണ് ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകൾ നടത്തികൊണ്ടു പോകുന്നതിനായി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്ന തിനുള്ള ഓർഡിനൻസ് വീണ്ടും കൊണ്ടുവരാനും മന്ത്രിസഭയോഗ ത്തിൽ തീരുമാനമായി

ഡൽഹി രാംലീലാ മൈതാനത്ത് ഉച്ചയ്ക്കു ചേരുന്ന പൊതുസമ്മേളനത്തിൽ ബി ജെ പി ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ കൌൺസിൽ ഉദ്ഘാടനം ചെയ്യും

ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കേന്ദ്രമന്ത്രി മാർ എം പിമാർ തുടങ്ങിയരും യോഗത്തിൽ പങ്കെടുക്കും

ജെ

ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ദേശീയ കൌൺസിൽ യോഗമാണെന്നതിനാൽ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മദ്ധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതിയും യോഗം വിലയിരുത്തും കേരളത്തിൽ നിന്ന് സംസ്ഥാന അദ്ധ്യക്ഷൻ പി

കേരളത്തിൽ സ്വീകരിക്കേണ്ട തന്ത്ര ങ്ങളും യോഗം ചർച്ച ചെയ്യുമെന്ന് ശ്രീധരൻ പിള്ള പറഞ്ഞു

ഇതിനിടെ മുൻ മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിങ് ചൌഹാൻ രമൺ സിങ് വസുന്ധര രാജെ എന്നിവരെ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റുമാരായി നിയമിച്ചു

ഇവയിൽ രണ്ടെണ്ണം ജമ്മു കശ്മീരിലെ സാംബ പുൽവാമ ജില്ലകളി ലാണ് മറ്റൊരെണ്ണം ഗുജറാത്തിലെ രാജ്കോട്ടിലാണ് സ്ഥാപിക്കുക

ഡെൻമാർക്കുമായി സമുദ്രസംബന്ധമായ വിഷയങ്ങളിൽ ഉണ്ടാക്കിയ ധാരണപത്രത്തിനും ക്യാബിനറ്റ് അംഗീകാരം നൽകി ഇന്ത്യയിൽ ബിസനസ്സ് സുഗമമായി നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കാൻ വികസിത മാതൃകാ ഏകജാലക സംവിധാനത്തിന്റെ ശക്തിപ്പെടുത്തലിനായി ജപ്പാനുമായി ഉണ്ടാക്കിയ ധാരണാപത്രവും അംഗീകരിച്ചു

ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇതാദ്യമാ യാണ് ഭാരോദ്ധഹന വിഭാഗത്തിന് ഇത്തരമൊരു ബഹുമതി ലഭിക്കു ന്നതെന്ന് ഐ

എഫ് സെക്രട്ടറി സഹ്ദേവ് യാദവ് പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ് നിലവിൽ ശ്രീ

ഒരു മേജറീനും ബി എസ് എഫ് ജവാനുമാണ് പരിക്ക് തുടർച്ചയായ മൂന്നാർ ദിവസമാണ് പാക് സേന വെടിവെയ്പ്പു നടത്തുന്നത് ഇന്ത്യൻ സേന തിരിച്ചടിച്ചു ഈ വർഷത്തെ ആദ്യ പത്തു ദിവസങ്ങളിൽ ഏഴു ദിവസവും പാക് സേന വെടിയുതിർത്തതായാണ് റിപ്പോർട്ട്

ബിഐ ഡയറക്ടർ രാകേഷ് അസ്താന സമർപ്പിച്ച ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചേക്കും

തന്റെ മേൽ ചുമത്തിയ കേസുകൾ തെറ്റാണെന്നും ആസൂ ത്രിതമാണെന്നുമാണ് അസ്താനയുടെ വാദം ഖുറേഷി കേസിൽ രണ്ടു കോടി രൂപ ഒരു ബിസിനസ്സുകാരനിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്നതാണ് അസ്താനയുടെ മേലുള്ള കുറ്റം

ഭാരദേഹനത്തിൽ രണ്ട് സ്വർണ്ണത്തോടെ മിസോറാം മികച്ച പ്രകടനം കാഴ്ച വെച്ചു

വിധി പുറപ്പെടുവിച്ചതു മുതൽ സൃദ്ധ്ഥാന്ത്തുണ്ടായ ആസൂത്രിതമായ അക്രമ പരമ്പരയെക്കുറിച്ചുക്ക് ശ്രബരിമലയിൽ വിവിധ തീർത്ഥാടന സമയങ്ങളിൽ നട തുറന്നിപ്പോൾ ഉള്ളതുവരെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ടിലുണ്ട് നില്യ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ സംഘപരിവാർ സംഘ്ടനകൾ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ചും ഭക്തരായ സ്ത്രീകൾക്ക് നേരെ നടന്ന അക്രമങ്ങളെക്കുറിച്ചും ഉള്ള വിശദാംശങ്ങളും റിപ്പോർട്ടിലുണ്ട്

പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ വിവാഹം പെൺകുട്ടികളിലെ പോഷകക്കുറവ് എന്നീ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ജില്ലയിൽ പദ്ധതി നടപ്പാക്കുന്നത്

ശബരിമല യിലെ പോലീസ് നടപടി സംബന്ധിച്ച് നടപടി വേണമെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ആവശ്യം

തിരിച്ചറിയൽ കാർഡ് വിതരണം ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർക്കുള്ള ധനസഹായം ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പോഷകാഹാരത്തിനും തുടർ ചികിത്സയ്ക്കുമുള്ള സാമ്പ ത്തിക സഹായ വിതരണം വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൌകര്യം ലഭ്യമാക്കുന്ന പദ്ധതി സ്വയംതൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമ്പ ത്തിക സഹായം എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത്

കൊല്ലത്ത് നടത്തിയ മെഗാഅദാലത്തിലാണ് കമ്മീഷൻ അംഗങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കിയത്